എഫ് തയാറാകുമോ യെന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല് സ്ഥാനാർഥിയെ പിൻവലിക്കില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേ ന്ദ്രൻ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നാളത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പരിഗ്ണിക്കുമെന്ന് കോൺഗ്രസ്

രണ്ടാം മത്സരം മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസുമായി ള ൽ ശ്വ ൾ ശ്വ ൾ ശ്ര ശ വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരി ച്ചാൽ ഇടതു സ്ഥാനാർഥിയെ പിൻവലിച്ച് ദേശീയ മതേതര പ്പാറ്റ്ഫോമിന് പിന്തുണ നൽകാൻ എൽ

എഫ് തയാറാകുമോ യെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല ആവശ്യപ്പെട്ടു രാഹുൽഗാന്ധിക്കെതിരെ ഇടതു സ്ഥാനാർഥി മത്സരിക്കുന്നത് നൽകുന്ന സന്ദേശം എന്താണെന്ന് സിപിഐഎം വിശദീകരിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

എഫ് നേടുമെന്ന ആശങ്കയാണ് ഇടതുമുന്നണി ക്കെന്നും രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇടതു നേതാക്കളുടെ പ്രതിക രണത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു

എസിനെയും ബി

പിയെയും ചെറുക്കാൻ കഴിയുന്ന രാഹുൽഗാന്ധിക്കൊപ്പം കേരളത്തിന്റെ മതേത്രം മനസ് ഉറച്ചു നിൽക്കുമെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു രാഹുൽഗാന്ധിയെ പിന്തുണക്കുകയെന്ന ച്ചരിത്രപരമായ കടമ ഏറ്റെടുക്കാതിരുന്നാൽ അത് എൽഡിഎഫ്പിന്റെ ഹിമാലയൻ മണ്ട ത്തരമായി മാറും ഡൽഹിയിൽ പിന്തുണക്കാമെന്നും വയനാട്ടിൽ പിന്തുണക്കില്ലെന്നും എടുക്കുന്ന നിലപാട് ആരാണ് മുഖ്യശത്രു വെന്ന് അറിയാത്ത രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും ചെന്നിത്തല വൃക്തമാക്കി തെക്കേ ഇന്ത്യയിൽ രാഹുൽഗാന്ധി മത്സരിച്ചാൽ ഒരു സീറ്റു പോലും കിട്ടില്ലെന്ന ഭയപ്പാടിലാണ് സിപിഐഎമ്മും ബിജെപിയു മെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മത്സരിക്കാൻ ആവശ്യപ്പെടുന്നതിന് കെ

സിക്ക് അവകാശ മുണ്ട് അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡും രാഹുൽഗാന്ധിയുമാണ് പാർട്ടി അധ്യക്ഷൻ ഡൽഹിയിൽ ഇല്ലാ ത്തതും ഞായറാഴ്ചകളിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് സമിതി ചേരാ ത്തതുമാണ് തീരുമാനം നാളത്തേക്ക് നീളാൻ കാരണമെന്നും ചെന്നി ത്തല വിശദീകരിച്ചു

ഇടതു സ്ഥാനാർഥിയോട് തോൽക്കാനാകും രാഹുൽഗാന്ധിയുടെ വിധിയെന്ന് അദ്ദേഹം തിരു വനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു പാർട്ടി അധ്യക്ഷനെ ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിപ്പിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും കാനം വൃക്തമാക്കി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽഗാന്ധി തീരുമാനം വ്യക്തമാക്കിയിട്ടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് ് നേതാവ് പി സി ചാക്കോ ന്യൂഡൽഹിയിൽ പറഞ്ഞു

സിയുടെ ആവശ്യ ത്തിൽ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ലു ദക്ഷിണേന്തൃയിൽ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ മത്സരി ക്കാൻ രാഹുൽഗാന്ധിയോട് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും അദ്ദേഹം തീരുമാനമെടുത്തതായി അറിയി ല്ലെന്നും പി സി ചാക്കോ വ്യക്തമാക്കി വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ തീരുമാനം നാളത്തെ കേന്ദ്രം തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷമേ ഉണ്ടാകൂവെന്ന് ഡൽഹി റിപ്പോർട്ടുകൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് കോഴിക്കോട്ട് നടത്താനിരുന്ന വാർത്താസമ്മേളനം റദ്ദാക്കി വയ നാട്ടിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗം ചേർന്നു വയനാട് സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽഗാന്ധിയാണെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു

സിയുടെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ടെന്നും പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നതായും ഉമ്മൻചാണ്ടി കോട്ടയത്ത് സ്വകാര്യ ചാനലിനോട് പറഞ്ഞു വയനാട് സീറ്റിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നതിൽ പാർട്ടിയിൽ ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളിൽ സിപിഐഎമ്മും സിപിഐയും എതിർപ്പ് വ്യക്തമാക്കി മതനിര പേക്ഷ മുന്നണി രൂപീകരിക്കുകയെന്ന ലക്ഷ്യത്തിന് വിരുദ്ധമാണ് ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുക വഴി കോൺഗ്രസ് മുന്നോട്ടു വെക്കുന്ന നിലപാടെന്ന് പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ മുഖ്യശത്രു ബി ജെ പിയല്ലെന്ന തെറ്റായ സന്ദേ ശമായിരിക്കും രാഹുൽഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം നൽകു കയെന്ന് സി

ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമച ന്ദ്രൻപിള്ള പറഞ്ഞു

ന്യൂനപക്ഷ വോട്ടു നേടാൻ കോൺഗ്രസ് നടത്തുന്ന കപട നാടകമാണ് ബി

പി വിരുദ്ധ നില പാടെന്നും രാമചന്ദ്രൻപിള്ള ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അതിനെ സംഘടനാപരമായി നേരിടാൻ കെൽപും ജനപിന്തുണയും എൽ ഡി

കോൺഗ്രസിലെ ഗ്രൂപ്പു വഴക്കിന്റെ ഭാഗമായി വേണം ഈ നീക്കത്തെ കാണാനെന്നും രാമചന്ദ്രൻപിള്ള അഭിപ്രാ യപ്പെട്ടു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരി ക്കേണ്ടി വരുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് കാണിക്കു ന്നതെന്ന് സി

ഐ നേതാവ് സത്യൻ മൊകേരി പറഞ്ഞു മുഖ്യ ശത്രുവെന്ന് വിശേഷിപ്പിക്കുന്ന ബി

പി മത്സരിക്കാത്ത മണ്ഡ ലത്തിൽ പാർട്ടി അധ്യക്ഷനെ കൊണ്ടു വരുന്ന കോൺഗ്രസ് നയം പരിഹാസ്യമാണെന്നും സത്യൻ മൊകേരി അഭിപ്രായപ്പെട്ടു രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ ബിജെപി ആ സീറ്റ് ഏറ്റെടുക്കുന്നതിന്റെ സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഇക്കാ ര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ബിജെപി ദേശീയ നേതൃത്വമാ ണ് അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം അക്കാര്യത്തിൽ തീരുമാനമാകുമെന്നും ശ്രീധരൻപിള്ള സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ഇപ്പോൾ ബിഡിജെഎസിനാണ് വയനാട് മണ്ഡലം നൽകിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സാമുദായിക സന്തുലനം പാലിച്ചിട്ടില്ലെന്ന് സമസ്ത മുശാവറ അംഗം ഉമർഫൈസി മുക്കം പറഞ്ഞു വിജയസാധ്യതയുള്ള ഒരു സീറ്റ് പോലും മുസ്ലിം സമു ദായത്തിന് നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് ആരോപി ച്ചു പാർലമെന്റിൽ മുസ്ലിം പ്രാതിനിധ്യം കുറയുന്നത് ആശങ്കാജ നകമാണെന്നും നീതിനിഷേധത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ ജന വികാരം പ്രതിഫലിച്ചാൽ ഉത്തരവാദിത്തം കോൺഗ്രസ് നേതൃത്വ ത്തിനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിനായി മാറുന്ന ടി സിദ്ദീഖിനെ വിജയ സാധൃതയുള്ള സീറ്റിലേക്ക് പരിഗണിക്കണ മെന്നും ഉമർ ഫൈസി ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയെ വയനാ ട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഉമർഫൈസി പറഞ്ഞു സമസ്ത ഉന്നയിച്ച വാദം ന്യായമാണെന്നും ഇപ്പോഴത്തെ സാഹ ചര്യങ്ങളെ വിശാലമായി കാണണമെന്നും ഇതിന് ഭാവിയിൽ പരി ഹാരം കാണുമെന്നും കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ വൃക്തമാക്കി

ഇതാദ്യമായി വെബ്സൈറ്റുകൾക്കും സാമൂഹിക മാധ്യമങ്ങൾക്കും തെരഞ്ഞെ ടുപ്പ് കമ്മീഷൻ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഭിപ്രായ വോട്ടെ ടുപ്പുകൾക്കും ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും ശബ്ദസന്ദേശ ങ്ങൾക്കും വിഷലുകൾക്കും നിർദ്ദേശം ബാധ്കമാണെന്നും കമ്മീ ഷൻ വ്യക്തമാക്കി

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈ റ്റിൽ ഓൺലൈനായി മാത്രമേ പേര് ചേർക്കാൻ കഴിയൂ

അംഗീകാരമില്ലാത്ത രജിസ്റ്റർ ചെയ്ത പാർട്ടികൾക്കും കക്ഷി രഹിതർക്കും പ്രക്ഷേപണത്തിന് അർഹതയുണ്ടാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹി യിൽ അറിയിച്ചു

രാത്രി എട്ടിന് മുംബൈയിൽ നടക്കുന്ന മത്സ രത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമു ട്ടും മലേഷ്യയിലെ ഇപ്പോയിൽ അസ്ലൻഷാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി ഏറ്റുമുട്ടും

ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നതും ജയ്ഹോ എന്ന് പറ യുന്നതും മാത്രമല്ല രാജ്യസ്നേഹമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്ക യ്യനായിഡു പറഞ്ഞു ആളുകളെ മതത്തിന്റെയും ജാതിയുടെയും നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പേരിൽ വേർതിരിക്കുന്നവർ ഭാരത് മാതാ കീ ജയ് വിളിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എല്ലാവരും ജയിക്കട്ടേയെന്ന ചിന്തയാണ് യഥാർത്ഥ രാജ്യ സ്നേഹമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഡൽഹി സർവകലാശാലയിലെ വിദ്യാർഥികളുമായി സംവദിക്കുകയായി രുന്നു അദ്ദേഹം ഭയവും അഴിമതിയും വിഭാഗീയതയും ജാതി വേർതിരിവും ഇല്ലാത്ത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ യുവാക്കൾ രംഗ ത്തിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് രണ്ടാം ഗഡു വിതരണം നടത്താൻ തെരഞ്ഞെടുപ്പു കമ്മീഷൻ അനുമതി നൽകി യിരുന്നു

സംസ്ഥാനത്തെ നാല് ജില്ലകളിലൊഴികെ മറ്റിടങ്ങളിൽ കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സൂര്യാതപ മുന്നറിയിപ്പ് കോഴി ക്കോട് കണ്ണൂർ പാലക്കാട് തൃശൂർ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോട്ടയം ഉൾപ്പെടെ പത്ത് ജില്ലകളിൽ ഇന്ന് താപനില മൂന്ന് ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം

എം പാർട്ടി ഓഫീസിൽ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിൽ അറസ്റ്റിലായ യുവാവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ചെർപ്പുളശ്ശേരി പുതനാലയ്ക്കൽ തട്ടാരൂതൊടിയിൽ പി

പരപ്പനങ്ങാടി നെടുവ ഹരിപുരം മാഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ചു

ക്ഷേത്രത്തിലെ ഭണ്ഡാരം പൂട്ട് പൊളിച്ച് പണവും സി സി ടി വി ക്യാമറയുമാണ് മോഷ്ടിച്ചത്